ഓൺലൈൻ വിദൂര വിദ്യാഭ്യാസ രീതി തുടരുമെന്നും അത് പ്രോത്സാഹിപ്പിക്കുമെന്നും മാർഗ്ഗനിർദേശത്തിൽ പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി ജഷിത കുമാരി

നോട്ട് ബുക്കുകൾ പേന പെൻസിൽ വാട്ടർബോട്ടിൽ തുടങ്ങിയവ പങ്കുവെക്കാൻ അനുവദിക്കരുത് തുടങ്ങിയവയും മാർഗ്ഗനിർദേശത്തിലുണ്ട് സ്റ്റാഫ് റൂമുകളിലും സാമൂഹിക അകലം പാലിക്കൽ നിർബന്ധമാണ് സ്കൂൾ അസംബ്ലികളും സ്പോർട്സുകളും സംഘടിപ്പിക്കരുത്

കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അധ്യാപകരും വിദ്യാർഥികളും തമ്മിലെ ആശയവിനിമയത്തിന് സ്കൂൾ പരിസരം ഉപയോഗിക്കാം

വിദ്യാർഥികളുടെ യാത്രയ്ക്കായി സ്കൂൾ ബസുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശാരീരിക അകലം പാലിക്കലും സാനിറ്റൈസേഷനും നിർബന്ധമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി രേര പത്ത് ലക്ഷം ജനസംഖ്യയിൽ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം ലോകത്ത് ഏറ്റവും കുറവ് ഇന്ത്യയിലാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ അറിയിച്ചു

രാജ്യത്ത് കോവിഡ് മരണനിരക്കും കുറഞ്ഞു വരികയാണെന്ന് അദ്ദേഹം അറിയിച്ചു

രേര കോവിഡ് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ജനങ്ങൾ അലംഭാവം കാണിക്കുന്നതായി സംസ്ഥാനങ്ങളിൽ നിന്ന് പരാതി കിട്ടുന്നുണ്ടെന്ന് നിതി ആയോഗ് അംഗം വി

സാമൂഹിക അകലം പാലിക്കലും മാസ്ക് ധരിക്കലും ഉൾപ്പെടെ കാര്യങ്ങൾ മഹാമാരി വ്യാപനത്തെ കുറയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

ഇടുക്കി വയനാട് ജില്ലകളിൽ നൂറിൽ താഴെയാണ് രോഗബാധ രേര സംസ്ഥാന ഗവൺമെന്റ് സഹായത്തോടെ ടാറ്റ ഗ്രൂപ്പ് കാസർകോട് നിർമ്മിച്ച കേരളത്തിലെ ആദ്യ കോവിഡ് ആശുപത്രി സമുച്ചയം ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും

ദേദ കോഴിക്കോട് ജില്ലയിൽ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ സാംബശിവറാവു പറഞ്ഞു രോഗവ്യാപനം രൂക്ഷമാകുന്ന വാർഡുകളിൽ കൂടുതൽ പേരിലേക്ക് രോഗം പകരാതിരിക്കാനാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

രുമ രാജ്യം ഒറ്റക്കെട്ടായി കോവിഡ് മഹാമാരിക്കെതിരെ പോരാടണമെന്ന് മന്ത്രി എം

ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വികസന പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി

ആരോഗ്യവകുപ്പിലെ ആയുർവേദം ഹോമിയോ ഉൾപ്പെടെ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കും രുമ കൊല്ലം ജില്ലയിൽ കണ്ടയിൻമെന്റ് സോൺ അല്ലാത്ത പ്രദേശങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ ഏഴു മണി മുതൽ രാത്രി ഒൻപതുവരെ പ്രവർത്തിക്കാൻ അനുമതി നൽകി കൊവിഡ് പശ്ചാത്തലത്തിൽ ശബരിമല തീർത്ഥാടനം സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ

ഗവൺമെന്റിന്റെ നൂറുദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ഉദ്ഘാടനം

രുഭ മത്സ്യ ഉൽപാദനത്തിൽ സമുദ്രമേഖലയെ മാത്രം ആശ്രയിക്കുന്ന രീതി മാറി ഉൾനാടൻ മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ട സാഹചര്യമാണുള്ളതെന്ന് മന്ത്രി ജെ

റീ ബിൽഡ് കേരളയുടെ ഭാഗമായി വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിൽ ആരംഭിച്ച കൂട് മത്സ്യക്കൃഷി പദ്ധതി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കാരാപ്പുഴ അണക്കെട്ടിലും കൂട് മത്സ്യക്ക്വഷി ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു

കോഴിക്കോട് ജില്ലയിലെ കക്കട്ടിൽ കൈവേലി ബിഎംബിസി റോഡിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുകയായിരുന്നു മന്ത്രി

കാസർകോട് പാണാർക്കുളത്ത് നിർമിച്ച പാതയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്

രുമ താനൂർ പൊന്നാനി എന്നിവിടങ്ങളിൽ നിന്നായി കടലിൽ പോയി വള്ളങ്ങൾ തിരയിൽപെട്ട് കാണാതായ മൂന്നു പേരിൽ ഒരാളുടെ മൃതദേഹം കിട്ടി

മറ്റു രണ്ടു പേർക്കായി തിരച്ചിൽ തുടരുന്നു രുമ പ്രശസ്ത നാടക നടനും കലാപ്രവർത്തകരുടെ സംഘടനയായ നന്മയുടെ സംസ്ഥാന ജോയന്റ് സെക്രട്ടറിയുമായ കെ എസ് കോയ കോഴിക്കോട്ട് നിര്യാതനായി

ആകാശവാണിയുടെ റേഡിയോ നാടകങ്ങളിലും ശബ്ദ സാന്നിധ്യമായിരുന്നു ദേര തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ബി

പിയും എൻ

എയും തയ്യാറെന്ന് ബി

പി സംസ്ഥാന അധ്യക്ഷൻ കെ

നിയമസഭ ചേരാൻ പോലും അവസരമില്ലെന്നിരിക്കെ ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിൽ കാര്യമില്ലെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു രുമ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന പൊതുതിരഞ്ഞെടുപ്പിൽ സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതു സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

ഇവർക്കെതിരെ അന്വേഷണത്തിന് നിർദേശം നൽകിയതായും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു

ബാലഗോകുലം ചെങ്ങന്നൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കൃഷ്ണ വിചാര മഞ്ജരി സാംസ്ക്കാരിക സായാഹ്നത്തിന്റെ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിക്കുകയായിരുന്നു അദേഹം രുര കണ്ണൂർ കണ്ണവത്തെ എസ്

ഐ പ്രവർത്തകന്റെ കൊലപാതകത്തെക്കുറിച്ചന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു

കൂടെയുണ്ടായിരുന്ന സഹോദരിക്ക് പരിക്കേറ്റു ദേര തിരുവനന്തപുരം സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഇന്ന് ബിനീഷ് കൊടിയേരിയുടെ മൊഴിയെടുക്കും

ഡി കത്ത് നൽകി രുഭ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി സ്വന്തമായി വീട് നിർമ്മിക്കാൻ ശേഷിയില്ലാത്ത ഭവന രഹിതർക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് സമയപരിധി ഇന്ന് അവസാനിക്കും

കാലിക്കറ്റ് സർവകലാശാല ഏകജാലക ബിരുദ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാൻ തീയതി നീട്ടി